ഉപഗ്രഹ്ഹത്തിന്റെ കാലാവധി എട്ട് വർഷമാണ്

എസ് ആർ ഒ

എസ് ആർ ടി സി

ശബരിമല സന്നിധാനം പമ്പ നിലയ്ക്കൽ ഇലവുങ്കൽ പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നിരോധനാജ്ഞയുടെ കാലാവധി ഇന്നലെ അർധരാത്രി അവസാനിക്കാനിരിക്കെയാണ് ദീർഘിപ്പിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്